ന്യൂഡൽഹിയിൽ നടക്കുന്ന ഇന്ത്യ ഓപ്പൺ ബാഡ്മിന്റണിന്റെ പുരുഷ വിഭാഗം സിംഗിൾസിൽ ഇന്ത്യൻ താരം ശുഭാങ്കർ ഡേ പ്രീ കാർട്ടറിൽ പ്രവേശിച്ചു

എട്ടാം തീയതിയാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിനം ഒന്നാംഘട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിനം ഇന്നാണ്

ആന്ധ്രാപ്രദേശ് ഒഡീഷ സിക്കിം അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഒന്നാം ഘട്ടത്തിൽ രണ്ടാംഘട്ട തിരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ നടക്കും

സ്ഥാവര ജംഗമവസ്തുക്കൾ അടക്കമുള്ള സ്ഥത്ത് വായ്പാ വിവരങ്ങൾ ഗവൺമെന്റ് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കുടിശ്ശികയുടെ വിവരങ്ങൾ തുടങ്ങിയവ ഇതിൽ രേഖപ്പെടുത്തണം ക്രിമിനൽ കേസുകൾ ഉണ്ടെങ്കിൽ എഫ് ഐ

ഇതു നിരീക്ഷിക്കാൻ ഡി

പിയുടെ റാങ്കിൽ കുറയാത്ത പോലിസ് ഉദ്യോഗസ്ഥനെ നോഡൽ ഓഫിസറായി നിയമിച്ചിട്ടുണ്ട്

സൂക്ഷ്മ പരിശോധന അഞ്ചിനു ്നടക്കും

പ്രതിരോധ സേന കേന്ദ്ര സായുധ പൊലീസ് സേന എന്നിവയിലെ ഉന്നത ഉദ്യോഗസ്ഥർ മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള ഭരണ സംവിധാനത്തിലെ പ്രതിനിധികൾ എന്നിവർ അസമിലെ ഡിഞ്ചനിൽ നടന്ന യോഗത്തിൽ പങ്കെടുത്തായി പ്രതിരോധ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ അറിയിച്ചു

തെരഞ്ഞെടുപ്പിനിടെ നേരിടേണ്ടി വരാൻ സാധ്യതയുള്ള സുരക്ഷാ ഭീഷണികൾ മേഖലയിൽ പ്രവർത്തിക്കുന്ന സുരക്ഷാ സേനകളുമായുള്ള ആശയ വിനിമയം മെച്ചപ്പെടുത്തുന്നതിനുള്ള ഉപാധികൾ എന്നിവയും യോഗത്തിൽ ചർച്ചയായി

ജെ

ജെ

കേന്ദ്രമന്ത്രിയും ബനസ്കന്ദ മണ്ഡ്ലത്തിലെ സിറ്റിംഗ് എം

പി വിത്തൽ റഡാഡിയ പഞ്ച്മഹ്ലർ എം

കൃത്യമായ നടപടി ക്രമങ്ങൾക്ക് ശേഷമാണ് സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുത്തതെന്ന് ബി ജെ

അതേസമയം ആറു സ്ഥാനാർത്ഥികളെ മാത്രമാണ് കോൺഗ്രസ് ഇതുവരെ ഗുജറാത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളിലേയ്ക്ക് പ്രഖ്യാപിച്ചിട്ടുള്ളത്

ബിജെപി ദേശീയ അധ്യക്ഷൻ അമിത് ഷാ ജിതേന്ദർ റെഡ്റ്റിയെ ബിജെപിയിലേക്ക് സ്വാഗതം ചെയ്തു കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കിടയിൽ തെലങ്കാനയിൽ നിന്ന് ബിജെപിയിൽ ചേരുന്ന രണ്ടാമത്തെ നേതാവാണ് റെഡ്റി നേരത്തെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും മുൻമന്ത്രിയുമായിരുന്ന ഡി

ഡോനാപോളയിലെ രാജ്ഭവനിൽ ഗവർണർ മൃദൂലി സിൻഹയുടെ സാന്നിധ്യത്തിലാണ് ചടങ്ങ് നടന്നത്

മുഖ്യമന്ത്രി പ്രമോദ് സാവന്തിന്റെ മന്ത്രിസഭയിൽ നിന്നും ഇന്നലെയാണ് ധവലിക്കാറിനെ ഒഴിവാക്കിയത് സംസ്ഥാനത്തെ മൂന്ന് എംജിപി എംഎൽഎ മാരിൽ മനോഹർ അജ്ഗാവോങ്കർ പൌസ്കർ എന്നിവർ ബിജെപിയുടെ നിയമസഭാ വിഭാഗത്തിലേക്ക് ചേർന്നിരുന്നു

ഉപരാഷ്ട്രപതി എം

മാധ്യമങ്ങൾ മികച്ച തൊഴിൽ വൈദഗ്ദ്ധ്യം പ്രകടിപ്പിക്കുന്നതോടൊപ്പം നൽകുന്ന വാർത്തകൾ പക്ഷപാത രഹിതവും കൃത്യവും ആയിരിക്കണമെന്ന് ശ്രീ

വോട്ട് ചെയ്യാനുള്ള ജനങ്ങളുടെ അവകാശത്തെ ശാക്തീകരിക്കുന്നതിന് ജനങ്ങൾക്ക് കൃത്യമായ വിവരങ്ങൾ നൽകണമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട്ട് ആവശ്യപ്പെട്ടു

ക്രൊയേഷ്യൻ തലസ്ഥാനമായ സാഗ്റെബിൽ ഇന്ത്യ ക്രൊയേഷ്യ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം പ്രതിരോധ മേഖലയാണ് ഇന്ത്യയും ക്രൊയേഷ്യയും തമ്മിലുള്ള സഹകരണത്തിൽ പ്രധാനമെന്ന് രാഷ്ട്രപതി പറഞ്ഞു ക്രൊയേഷ്യൻ കമ്പനികളെ ഇന്ത്യയിൽ നിക്ഷേപം നടത്തുന്നതിന് രാഷ്ട്രപതി ക്ഷണിച്ചു സാഗ്റെബ് സർവ്വകലാശാല വിദ്യാർത്ഥികളെയും ശ്രീ കോവിന്ദ് അഭിസംബോധന ചെയ്തു

ട്രൈബ്യൂണലുകളുടെ പ്രവർത്തന രീതി മെച്ചപ്പെടുത്തുന്നതിനാണ് ഇവയെ ഒരു കേന്ദ്രീകൃത വൃവസ്ഥയുടെ കീഴിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്

അൽഖയ്ദയെയും ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദ സംഘടനയെയും ഉൾപ്പെടുത്തിയ കരിമ്പട്ടികയിൽ അസറിനെയും ഉൾപ്പെടുത്തണമെന്നാണ് പ്രമേയത്തിൽ അമേരിക്ക ആവശ്യപ്പെടുന്നത് പ്രമേയത്തിന്മേൽ വോട്ടെടുപ്പ് ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഇതുവരെ വൃക്തത ഉണ്ടായിട്ടില്ല അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കുന്നതിന് അമേരിക്ക യു എൻ സുരക്ഷാ സമിതിയിൽ അവതിരിപ്പിച്ച പ്രമേയത്തെ ചൈന നേരത്തെ എതിർത്തിരുന്നു

കോൻട പോലീസ് സ്റ്റേഷനിൽ സി

എഫ് ഉദ്യോഗസ്ഥരുടെ സാന്നിധൃത്തിലായിരുന്നു രണ്ടു സ്ത്രീകൾ ഉൾപ്പെടെ പത്ത് നക്സലുകൾ കീഴടങ്ങിയത്

ആറോളം തീവ്രവാദികൾ വനമേഖലയിൽ കുടുങ്ങിയിട്ടുണ്ടെന്ന് സു്രക്ഷാ വൃത്തങ്ങൾ അറിയിച്ചു ഇവർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്

കിടംബി ശ്രീകാന്തി എച്ച് എസ് പ്രണോയ് ബി സായ്പ്രണീത് എന്നിവരാണ് പ്രീ കാർട്ടറിൽ ഇടം പിടിച്ച മറ്റ് ഇന്ത്യൻ താരങ്ങൾ

ഇന്ന് രാത്രി എട്ട് മണിക്ക് ബംഗളൂരുവിൽ നടക്കുന്ന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ മുംബൈ ഇന്ത്യൻസിനെ നേരിടും

എസ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മൈക്ക് പോംപിയോ പറഞ്ഞു എന്നാൽ തീവ്രവാദികളെ സംരക്ഷിക്കുന്ന നയമാണ് ചൈന പിന്തുടരുന്നതെന്ന് അദ്ദേഹം ട്വിറ്ററിൽ അറിയിച്ചു ചൈന ന്യൂനപക്ഷമായ മുസ്ത്രീങ്ങളുടെ അവകാശങ്ങളെ ഹനിക്കുകയാണെന്നും അദ്ദേഹം ടിറ്ററിൽ കുറിച്ചു

ബ്രക്സിറ്റ് കരാറ്റിന്റ് ്പകരം മറ്റ് മാർഗങ്ങൾ കണ്ടെത്താനുള്ള ശ്രമങ്ങളാണ് ഇതോടെ പരാജയപ്പെട്ടത് പ്രധാനമന്ത്രി തെരേസ മേ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പിന്മാറുന്നതിനുള്ള ബ്രക്ക്സിറ്റ് കരാർ രണ്ടു തവണ പാർലമെന്റിൽ അവതരിപ്പിച്ചെങ്കിലും പ്രാജയപ്പെടുകയായിരുന്നു യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പിൻമാറുന്ന ഉടമ്പടിക്ക് തെരേസാമേയ് കനത്ത വില നൽകേണ്ടിവരുമെന്ന് പാർലമെന്റ് അംഗങ്ങൾ മുന്നറിയിപ്പ് നൽകി